കെ ശൈലജ

അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്

രുര വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും റഷ്യയിൽ ചർച്ച നടത്തി കൂടിക്കാഴ്ച രണ്ട് മണിക്കൂറോളം നീണ്ടു ലഡാക്കിലെ നിലവിലെ അതിർത്തിപ്രശ്നം ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ നേരത്തെ അറിയിച്ചിരുന്നു

ഐസൊലേഷനിൽ പരീക്ഷ എഴുതണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് രോഗ ലക്ഷണം കാണിക്കുന്ന വിദ്യാർത്ഥിയെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നും മറ്റു മാർഗങ്ങളിലൂടെ പരീക്ഷ എഴുതാൻ അവസരം നൽകാമെന്ന് മാർഗനിർദേശത്തിൽ പറയുന്നു വിദ്യാർഥിയുടെ രോഗം മാറിയ ശേഷം പരീക്ഷ എഴുതുന്നതിന് യൂണിവേഴ്സിറ്റികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്രമീകരണം ഏർപ്പെടുത്താം രമേ സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം മൂവായിരം കടന്നു

വിശദാംശങ്ങളുമായി സബിത ആനന്ദ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി രേര സ്വയം നിരീക്ഷണത്തിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് പരിശോധനാഫലം നെഗറ്റീവ് മന്ത്രി തോമസ് ഐസക്കിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി സ്വയം നിരീക്ഷണത്തിൽ പോയത് രുര കൊവിഡിനൊപ്പം ജീവിച്ച് അതിനെ ചെറുക്കാൻ പഠിക്കണമെന്ന് മന്ത്രി കെ

കൊവിഡ് പ്രതിരോധത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ബോധവത്ക്കരണം ശക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു

രുമ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പു വരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ രൂപീകരിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി

കേരളത്തിൽ ഉടനീളം ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു

രുമ കോവിഡ് രോഗവ്യാപനം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഇളമ്പള്ളൂർ വെള്ളിമൺ കോളനികളിൽ മേഖലകളിലെ നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ജെ

ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഗൂഗിൾ മീറ്റ് വഴി ചേർന്ന അവലോകനയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

രുമ കൊല്ലം ജില്ലയിൽ വിവാഹനിശ്ചയം കല്യാണം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയിൽ ആൾക്കൂട്ടം പാടില്ലായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ ആർ ശ്രീലത അറിയിച്ചു

എന്നാൽ വില്ലേജ് ഓഫിസ് സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാകുമെന്ന് തിരുവനന്തപുരം തഹസിൽദാർ അറിയിച്ചു വില്ലേജ് ഓഫിസിന്റെ പ്രവർത്തനം തിങ്കളാഴ്ച പുനരാരംഭിയ്ക്കും

ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റുന്ന കാര്യത്തിൽ പ്രതിപക്ഷവുമായി സമവായത്തിലെത്താനാണ് യോഗം വിളിച്ചത് പ്രതിപക്ഷ നിലപാട് യോഗത്തിൽ നിർണായകമാവും രുമ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാ തീരത്തിനടുത്തായി ഞായറാഴ്ചയോടെ ന്യൂനമർദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ കണക്കിലെടുത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

രമേ കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു പലയിടങ്ങളിലും വെള്ളം കയറി

കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖലയുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആരംഭിച്ച മൈലം തലവൂർ കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം വിഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

സുധാകരനും മുൻമുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയും കേന്ദ്ര റെയിൽവെ മന്ത്രി പീയുഷ് ഗോയലിന് കത്തയച്ചു ട്രെയിനുകൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുമെന്ന് മന്ത്രി കത്തിൽ വ്യക്തമാക്കി കോവിഡ് മഹാമാരിമൂലം ബസുകളും മറ്റും നിർത്തലാക്കിയ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഗതാഗതസംവിധാനമാണ് നിലച്ചതെന്നും ഇതോടെ ജനജീവിതം ദുസഹമായെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു രുഭ പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്ഥിരം തൊഴിലിന് കൂടി പ്രാധാന്യം നൽകിയാണ് ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി എ

ഇടുക്കി കഞ്ഞിക്കുഴി പാലപ്പാവ് കോളനിയിൽ തുടങ്ങിയ ബാംബൂക്രാഫ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുദ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യം സംബന്ധിച്ച റാങ്കിങ്ങ് കണക്കാക്കുന്നതിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഇ

കേരളം ഏറെ നിക്ഷേപ സൌഹൃദമായ സാഹചര്യത്തിൽ ഇത്തരമൊരു കണക്ക് വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു രുമ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് പദ്ധതിയിൽ നെട്ടൂരിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നാല് ബീമുകൾ തകർന്നു വീണതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര വിജിലൻസ് കമ്മീഷന് കത്തയച്ചു നിർമ്മാണത്തിലെ വൈകല്യമാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമാണെന്ന് കത്തിൽ പറയുന്നു ഈ പ്രൊജക്ടിലെ മുഴുവൻ പണിയെക്കുറിച്ചും സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ദേഴ ജ്വല്ലറി നിക്ഷേപത്തട്ടിപ്പ് കേസിലെ പ്രതിയായ മഞ്ചേശ്വരം എംഎൽ എ എംസി കമറുദ്ദീനോട് ആറു മാസത്തിനകം പണം തിരിച്ചു നൽകാൻ മുസ്ലിംലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു നിക്ഷേപകരുടെ വിവരങ്ങൾ സംബന്ധിച്ചും ആസ്തി വകകളെ കുറിച്ചും ഈ മാസം മുപ്പതിനകം വിശദമായ റിപ്പോർട്ട് കൈമാറണമെന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതാക്കളുടെ യോഗം നിർദേശിച്ചു